ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള

എം ഷാജിക്കാവശ്യമായ നിയമ രാഷ്ട്രീയ പിന്തുണകൾ നൽകുമെന്ന് കെ

സി

നവോത്ഥാന മുന്നേറ്റങ്ങളെ എതിർത്തവരെല്ലാം ചരിത്രത്തിൽ വിസ്മൃതരാ യിട്ടുണ്ട് ഭാവി തലമുറ കുറ്റക്കാരല്ലെന്ന് വിധിക്കണമെങ്കിൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതോടൊപ്പം നിൽക്കാനാകണമെന്ന് അദ്ദേഹം തിരുവന ന്തപുരത്ത് പറഞ്ഞു

വേദിയിലിരിക്കെ പെരുമ്പറ മുഴക്കിയാണ് അദ്ദേഹം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്

പണ്ട് പല ക്ഷേത്രങ്ങ ളിലും അവർണ്ണർക്ക് പ്രവേശനം ഇല്ലാതിരുന്നപ്പോൾ ശബരിമലയിൽ എല്ലാ വർക്കും പോകാമായിരുന്നു അത്തരം പാരമ്പര്യം കാത്തുസൂക്ഷിച്ച ശബരി മലയെ ഇപ്പോൾ മറ്റ് ക്ഷേത്രങ്ങളുടെ പിന്നിലാക്കാനാണ് ശ്രമം നടക്കുന്ന തെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ക്ഷേത്രപ്രവേശന വിളംബര കൈപ്പുസ്തകം ശബരിമല കേസിൽ സുപ്രീംകോടതി വിധിയുടെ ചുരുക്കം എന്നിവ അദ്ദേഹം പ്രകാശിപ്പിച്ചു ചരിത്ര പ്രദർശനവും പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മന്ത്രി എ

മന്ത്രിമാരായ ഇ ചന്ദ്ര ശേഖരൻ മാത്യു ടി തോമസ് എ കെ ശശീന്ദ്രൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയവരടക്കം പ്രമുഖർ പങ്കെടുത്തു

ജെ ടി ഹാളിൽ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെ ഒത്തുചേരൽ നടക്കും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ചടങ്ങിൽ പങ്കെടുക്കും

കോഴിക്കോട്ട് ക്ഷേത്രപ്രവേശന വിളം ബര വാർഷിക പരിപാടികൾ രാവിലെ ടൌൺഹാളിൽ മന്ത്രി ടി പി രാമകൃ ഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പുരാരേഖകളുടെ പ്രദർശനം മന്ത്രി എ കെ ശശീ ന്ദ്രനും ഉദ്ഘാടനം ചെയ്യും

നവോത്ഥാന ചിത്രപ്രദർശനവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആഭി മുഖ്യത്തിൽ ദീപശിഖാ പ്രയാണം നടക്കും

വിളംബര ജാഥയ്ക്ക് ശേഷം മോയിൻകുട്ടി വൈദ്യർ മാപ്പി ളകലാ അക്കാദമിയിൽ മന്ത്രി ഡോക്ടർ കെ

രുട്ടിട്ടിട്ടിട ഇടുക്കിയിൽ വിളംബര ഘോഷയാത്രയും പൊതുസമ്മേളനവും സാംസ്കാരിക സദസ്സും തൊടുപുഴയിൽ ഇന്ന് തുടങ്ങും ഉച്ചകഴിഞ്ഞ് മന്ത്രി എം

രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ശബരിമല ഉൾപ്പെടെ ക്ഷേത്രങ്ങളുടെ വരുമാനം മറ്റ് ചെലവുകൾക്ക് ഗവൺമെന്റ് ഉപയോഗിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന വികസനത്തിനും റോഡ് വികസനത്തിനും ഉൾപ്പെടെ ഓരോ വർഷവും വലി യൊരു തുക ഗവൺമെന്റ് ചെലവഴിക്കുന്നുണ്ടെന്ന് അദ്ദേഹം നാം മുന്നോട്ട് പ്രതിവാര ടെലിവിഷൻ സംവാദ പരിപാടിയിൽ അറിയിച്ചു രുവെട്ടറു ശബരിമലയിലെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ സംസ്ഥാന ഗവൺമെന്റിന് അധികാരമില്ലെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു ശബരിമല സംരക്ഷണ രഥയാത്രക്ക് വയനാട്ടിലെ മാനന്തവാടിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരീശ്വരവാദിയായ മുഖ്യമന്ത്രി വിശ്വാസ സംഹിതകളെ തകർത്ത് ശബരിമലയെ ഭക്തരിൽ നിന്ന് അകറ്റുകയാണെന്നും ശ്രീധരൻപിള്ള കുറ്റ പ്പെടുത്തി ശ്രീധരൻപിള്ളയും എൻ ഡി എ കൺവീനർ തുഷാർ വെള്ളാപ്പ ള്ളിയും നയിക്കുന്ന ശബരിമല സംരക്ഷണ രഥയാത്ര ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കും വയനാട്ടിലെ പര്യടനം പൂർത്തിയാക്കി ജില്ലയിൽ പ്രവേശിക്കുന്ന രഥയാത്രയെ രാവിലെ ഒൻപതിന് ബി ജെ പി ജില്ലാ പ്രസി ഡന്റ് ടി

വടകരയിലാണ് ആദ്യ സ്വീകരണം

വൈകീട്ട് നാലിന് കടപ്പുറത്ത് സ്വീകരണപൊതുസ മ്മേളനം നടക്കും മലപ്പുറം ചേളാരിയിലാണ് ഇന്നത്തെ പര്യടന സമാപനം രുമ്പ്പെട്ടിര തിരുവനന്തപുരം അടക്കം രാജ്യത്തെ ആറ് വിമാനത്താവളങ്ങൾ സ്ഥകാര്യ മേഖലയെ ഏൽപ്പിക്കാനുള്ള കേന്ദ്ര തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു കാര്യക്ഷമതയും വരുമാ നവും വർദ്ധിപ്പിക്കാനും നിക്ഷേപം ആകർഷിക്കാനും ഇവയെ പൊതുമേഖ ലയിൽ തന്നെ നിലനിർത്തിത്തന്നെ സാധിക്കുമെന്ന് അദ്ദേഹം തിരുവനന്ത പുരത്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു

എം ഷാജിയ്ക്കാവശ്യമായ നിയമപ രവും രാഷ്ട്രീയവുമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ അറിയിച്ചു

സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ നയിക്കുന്ന വിശ്വാസസംരക്ഷണ യാത്രയ്ക്ക് കണ്ണൂരിൽ നൽകിയ സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുല്ലപ്പള്ളി കോൺഗ്രസ് എന്നും വിശ്വാ സികൾക്കൊപ്പമാണെന്ന് സ്വീകരണ ചടങ്ങിൽ കെ സുധാകരൻ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ധിക്കാരം മാത്രമേ അറിയൂവെന്നും സുധാകരൻ ആരോപിച്ചു വിശ്വാസസംരക്ഷണ യാത്രക്ക് ഇന്ന് തലശേരിയിലും ഇരിട്ടിയിലും സ്വീക രണം നൽകും ഉച്ചകഴിഞ്ഞ് യാത്ര വയനാട്ടിൽ പ്രവേശിക്കും

എം ഷാജിക്കെതിരായ കോടതിവിധിയെ മുസ്ലിംലീഗ് മേൽക്കോട തിയിൽ നിയമപരമായി നേരിടുമെന്ന് മുസ്ലിംലീഗ് സംസ്ഥാന ജനറൽ സെക്ര ട്ടറി കെ

എക്കാലവും വർഗീയതക്കെതിരായ നില പാട് സ്വീകരിച്ച വൃക്തിയാണ് ഷാജിയെന്നും അദ്ദേഹം വർഗീയത പ്രചരിപ്പി ക്കുന്ന ലഘുലേഖയിറക്കിയെന്ന ആരോപണം വ്യാജമാണെന്നും മജീദ് പറഞ്ഞു

വീടുകളെ ആറ് വിഭാഗ ങ്ങളായി തിരിച്ചാണ് ഗവൺമെന്റ് ധനസഹായം നൽകുന്നത് സ്വന്തം സ്ഥലത്ത് പുനർ നിർമ്മാണം ആരംഭിക്കുന്നവർക്ക് ആദ്യഗഡു നൽകാൻ ജില്ലാ കലക്ടർമാർക്ക് അനുമതി നൽകി അപേക്ഷിച്ചവർക്കെല്ലാം അടുത്തയാഴ്ച യോടെ ആദ്യഗഡു സഹായം വിതരണം ചെയ്യും

ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ഉച്ചകഴിഞ്ഞ് മത്സരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും

ഉച്ചകഴിഞ്ഞ് ഫൈനൽ മത്സരങ്ങൾ നടക്കും

സി മറുപടി യില്ലാത്ത ഒരുഗോളിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ തോൽപ്പിച്ചു

ഇന്ന് എ

കെ പൂനെ സിറ്റിയുമായി ഏറ്റുമുട്ടും

മന്ത്രി മാത്യു ടി തോമസ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും

ടി ഐകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് അടച്ച ഫീസ് തിരികെ നൽകുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ചടങ്ങ് മലപ്പുറത്ത് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും

രണ്ടുവർഷത്തെ കോഴ്സിന് ഇരുപതിനായിരം രൂപയും ഒരുവർഷത്തെ കോഴ്സിന് പതിനായിരം രൂപയു മാണ് സാമ്പത്തിക സഹായം ന്യൂനപക്ഷത്തിലെ ബി

എൽ വിദ്യാർത്ഥി കൾക്കാണ് പദ്ധതിയിൽ മുൻഗണന ഇമ്പിച്ചിബാവ ഭവന നിർമ്മാണ പദ്ധ തിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ മല പ്പുറത്ത് ഇന്ന് നിർവഹിക്കും

ഉച്ചക ഴിഞ്ഞ് റോഷ്നി പദ്ധതിയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യ മന്ത്രി മലയാളഭാഷ പരിജ്ഞാനരേഖ സമീക്ഷയുടെ പ്രകാശനവും നിർവ ഹിക്കും

എഫ് ഐ സംസ്ഥാന സമ്മേളനത്തിന് നാളെ കോഴിക്കോട്ട് കൊടിയുയരും സമ്മേളനത്തിന്റെ പതാക കൊടിമര ദീപ്ശിഖാ ജാഥകൾ ഇന്ന് ആരംഭിക്കും മൂന്ന് ജാഥകളും നാളെ വൈകീട്ട് കോഴിക്കോട് കടപ്പു റത്ത് സംഗമിക്കും തിങ്കളാഴ്ച പ്രതിനിധി സമ്മേളനം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി സായിനാഥ് ഉദ്ഘാടനം ചെയ്യും ബുധനാഴ്ച സമാപന റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

ഉത്തരവാ ദിത്വ ടൂറിസം സാഹസിക ടൂറിസം പച്ചപ്പരവതാനി പദ്ധതികളുടെ സംഘാ ടനം ശില്പശാലയിൽ ചർച്ച ചെയ്യും